രാജ്യരക്ഷാ മന്ത്രിയും സൈനിക മേധാവി കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും സ്വാതന്ത്ര്യം നേടിയ ശേഷം ഉണ്ടായ വിവിധ സൈനിക നടപടികളിൽ രാജ്യത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തവരെ ആദരിക്കുന്നതിന് വേണ്ടി യാണ് സ്മാരകം നിർമിച്ചത് വീരമൃത്യുവരിച്ചു സൈനികരുടെ പേര് സമുച്ചയത്തിലെ സ്മൃതി ഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്

ഡൽഹിയിൽ വിമുക്തഭടൻമാരുടെ റാലിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുക

മികച്ച ചിത്രമായി ഗ്രീൻ ബുക്കിനെ തെരഞ്ഞെടു ത്തു ബൊഹീമിയൻ റാപ്സഡിയിലെ അഭിനയത്തിന് റെമി മാലെ ക് മികച്ച നടനായി ദി ഫേവറിറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഒലിവിയ കോൾമാനാണ് മികച്ച നടി മികച്ച നടൻ മികച്ച സഹ നടൻ മികച്ച തിരക്കഥ എന്നിവയടക്കം നാല് പുരസ്കാരങ്ങൾ ഗ്രീൻ ബുക്ക് സ്വന്തമാക്കി

ഇഫ് ബീൽ സ്ട്രീറ്റ് കുഡ് ടോക്കിലെ അഭിനയത്തിന് സഹനടി യായി റെജിനാ കിങ്ങിനെ തെരഞ്ഞെടുത്തു

ഇറാനിയൻ സംവിധായിക റയ്ക സെഡാബ്ജിയാണ് ഇന്ത്യൻ സ്ത്രീയുടെ ജീവിതാവസ്ഥ ആവിഷ്കരിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് കേരള നിയമസഭയുടെ വജ്രജൂബിലി ആഘോത്തോടനുബ ന്ധിച്ച് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയുടെ ഭാഗമായി നടത്തുന്ന ദേശീയ വിദ്യാർത്ഥി പാർലമെന്റ് ഇന്ന് സമാപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച ആരംഭിച്ച പാർലമെന്റിൽ പ്ലീനറി സമ്മേളനങ്ങളും സംവാദങ്ങളും നടന്നു ജനാധിപത്യ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് അവ ബോധം സൃഷ്ടിക്കുകയാണ് വിദ്യാർത്ഥി പാർലമെന്റിന്റെ ലക്ഷ്യം

ഡി ഫൈബറിങ് മിൽ വിൽപ്പനശാല എന്നി വയടക്കം നവീകരണത്തിന്റെ ഭാഗമാണ്

ക്രൈസ്തവ സഭകള നിയന്ത്രിക്കാൻ ഗവു നിയമം കൊണ്ടു വരുമെന്നത് വ്യാജ പ്രചാരണമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി എൻ എസ് എസിനെതിരെ സിപിഐഎം ഒരു ആക്രമണവും നടത്തുന്നി ല്ലെന്നും നിലപാട് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു സിബിഐയ്ക്ക് കേരളത്തിൽ പ്രവേശനമില്ലെന്ന നിലപാടല്ല ഗവൺമെന്റിന്റേതെന്ന് കോടിയേരി വ്യക്തമാക്കി കേരളാ കോൺഗ്രസിനെ പിളർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും പി ജെ ജോസഫിനാണ് രമേശ് ചെന്നിത്തല യുടെ പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസു മായി ശബരിമല വിഷയത്തിൽ മാത്രമെ അഭിപ്രായവൃത്യാസമു ള്ളൂവെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു കാസർകോട് ഇരട്ടക്കൊലപാതക കേസിൽ തെളിവ് ശേഖരിക്കാനോ കൂടുതൽ പ്രതികളെ പിടികൂടാനോ പൊലീസ് ശ്രമിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞൂ പൊലീസിന്റെ അലംഭാവം മൂലം കേസന്വേഷണം നിലച്ച മട്ടിലാണ് കൊലപാതകത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടക്കണമെങ്കിൽ കേസ് സിബിഐയ്ക്ക് വിടണമെന്ന് അദ്ദേഹം തൃശ്ശൂരിൽ അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സീറ്റ് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു

ബി ജെപി വിരുദ്ധ കക്ഷികളെ ഒരുമിച്ച് ചേർത്ത് വിശാ ലടിസ്ഥാനത്തിലുള്ള ഐക്യമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന തെന്ന് വേണുഗോപാൽ മലപ്പുറത്ത് അറിയിച്ചു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് രണ്ടു സീറ്റ് വേണമെന്ന് പാർട്ടി വർക്കിങ് പ്രസിഡണ്ട് ്പി ജെ ജോസഫ് അറിയിച്ചു കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം ഇക്കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് എവിടെ മത്സരിക്ക് ണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാ ണെന്നും ജോസഫ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ വൃക്തമാക്കി

കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് ഗവ അനുവദിച്ച തീർത്ഥാ ടക സൌകര്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുഖ്യ മന്ത്രി പിണറായി വിജയൻ എസ് എൻ ഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാരായൂജി സുധാകരൻ ഡോ തോമസ് ഐസക് കടകം പള്ളി സുരേന്ദ്രൻ പി തിലോത്തമൻ എന്നിവർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മൂന്നര കോടി രൂപ ചെലവിലാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ തീർത്ഥാടക സൌകര്യ കേന്ദ്രം നിർമ്മിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് അനുമതി നല്കണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവ ശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി അയോധ്യാ കേസ് പരിഗണി ക്കുന്ന നാളെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ സുബ്രഹ്മണ്യൻ സ്വാമിയോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദേശിച്ചു ഹിമാചൽ പ്രദേശിലെ കിന്നാവൂർ ജില്ലയിൽ ഹിമപാതത്തിൽപ്പെട്ട സൈനികരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു ദുരന്ത നിവാരണ സേനയും സൈനൃവും ലോക്കൽ പോലീസും സംയുക്ത മായാണ് തിരച്ചിൽ നടത്തുന്നത്

ആവശ്യമായ പ്രതി രോധ ഗുളികകൾ എത്തിച്ച് വിതരണം ചെയ്തെന്നും മന്ത്രി വ്യക്ത മാക്കി കെ എസ് ആർ ടിസിയുടെ വൈദ്യുതി ബസ് സർവ്വീസ് ആരം ഭിച്ചു

എറണാകുളത്തു നിന്ന് സർവീസുകൾ വൈകീട്ട് തുടങ്ങും ഓൺ ലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർ കണ്ടീ ഷൻഡ് ലോ ഫ്ളോർ ബസിന്റെ നിരക്കാണ് വൈദ്യുതി ബസിലും ഈടാക്കുന്നത്

അന്തരീക്ഷ മലിനീ കരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഇലക്ട്രിക് ബസുകൾ ഏർപ്പെടുത്തിയത് നവകേരള നിർമ്മിതിയിൽ യുവകലാകാരന്മാരുടെ പങ്കാളിത്തം ഉറപ്പു വരുത്താൻ ആവിഷ്കരിച്ച സമഭാവന സർഗോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കമാകും

മുപ്പതിൽപ്പരം കലാരൂപങ്ങളുമായി മൂന്നൂറിലേറെ പ്രതിഭകൾ സർഗോത്സവത്തിൽ പ്ടങ്കെടുക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധത്തിനും ഗവേഷണ കഴിവുകൾ വികസിപ്പിക്കാനും ആവിഷ്കരിച്ച ശാസ്ത്രായനം പദ്ധതിയുടെ ഭാഗമായ ശാസ്ത്രപ്രഭാഷണ പര മ്പരയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും

ഹൈസ്ക്കൂളിൽ മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ജില്ലാതലത്തിൽ ശാസ്ത്ര സെമിനാർ ശാസ്ത്രമേഖലയിലെ പ്രമുഖരും വിദ്യാർത്ഥികളുമായി സംവാദം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്

ചൈന അമേരിക്ക സ്വിറ്റ്സർലാന്റ് ഉൾപ്പെടെ രാജ്യങ്ങളിലെ പ്രതിനിധി കളും ഉച്ചകോടിയിൽ പങ്കെടുക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റ ലിജൻസ് രണ്ടു കിലോഗ്രാം സ്വർണ്ണം പിടികൂടി റിയാദിൽ നിന്നെത്തിയ എയർ ഇന്ത്യ വിമാനത്തിലെ ശുചിമുറിയിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കണ്ടെത്തിയത്

കോൺഗ്രസ്സ് ധർമ്മടം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാലയാട് പി ടി സനൽ കുമാറിന്റെ വീടിനു നേരെയാണ് പുലർച്ചെ ആക്രമണമുണ്ടായത് അക്രമികൾ വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും കിണർ മലിനമാക്കുകയും ചെയ്തു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണക്ക് വനിതാ ജഡ്ജി വേണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വിചാരണ തൃശൂരിലേക്ക് മാറ്റണമെന്നും നടപടി കൾ വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയാണ് ഹർജി സമർപ്പിച്ചത് പ്രശസ്ത ചലച്ചിത്ര നടൻ കുതിരവട്ടം പപ്പുവിനെ ഇന്നലെ കൾ ഇതുവഴിയെ എന്ന പരിപാടിയിൽ ഇന്ന് കോഴിക്കോട്ട് അനു സ്മരിക്കും കുതിരവട്ടം ദേശപോഷിണി കമ്മ്യൂണിറ്റി ഹാളിൽ വൈകീട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് ബാബു പറശ്ശേരി ഉദ്ഘാ ടനം ചെയ്യും കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവത്തിൽ കോഴിക്കോട് ദേവഗിരി കോളജ് ജേതാക്കളായി പേരാമ്പ്ര സി

കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ അസിസ്റ്റന്റ് സെക്ര ട്ടറിയും കോഴിക്കോട് ജില്ലാ മുൻ സെക്രട്ടറിയുമായ ഒ

തിലോത്തമൻ ആവശ്യപ്പെട്ടു പന്തളം കുരമ്പാലയിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ സൂപ്പർസ്റ്റോറാക്കി മാറ്റിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഹൈന്ദവം അയ്യപ്പ ഭക്തസംഗമത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗ മായ മഹാസമ്പർക്കം ഇന്ന് കോഴിക്കോട്ട് സംഘടിപ്പിക്കും ഇന്നലെ സാമുദായിക സംഘടനാ ഭാരവാഹികളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും യോഗം വെള്ളിമാട്കുന്നിൽ ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിങ് യന്ത്രങ്ങളെകുറിച്ചും വിവിപാറ്റിനെക്കുറിച്ചും ബോധവ ത്കരിക്കാൻ തിരുവനന്തപുരത്ത് അവബോധ പരിപാടി ആരംഭി ച്ചു